നേരെ ഭീകരാക്രമണം

സ്ഥലമാറ്റവും നിയമനവും പ്രസംബന്ധിച്ച ഹർജി സുപ്രീംകോടതി വിശാല ബ്ബ്ചിന് വിട്ടു

പ്രധാനമന്ത്രി നാള്ള് ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും

സമ്മേളനം നാളെ ദുബായിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

സ്ഫോ ടക വസ്തുക്കൾ ഘടിപ്പിച്ച കാർ സൈനികവാഹനവ്യൂഹത്തിലേ ക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു അത്യുഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചതെന്നാണ് വിവരം

ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്താൻ ഭീകരസംഘടനയായ ജെയ്ഷെ മു ഹമ്മദ് ഏറ്റെടുത്തു

സ്ഫോടനത്തിനു ശേഷം ഭീകരർ വാഹനവ്യൂഹത്തിനു നേരെ വെടിയുതിർത്തതാ യും റിപ്പോർട്ടുണ്ട്

രക്ഷാപ്രവർത്തനവും ഭീകരവാദികൾക്കു വേണ്ടിയുള്ള തിരച്ചിലും പുരോഗമിക്കുകയാണ്

ഇ തിൽ സൈനികർ സഞ്ചരിച്ച രണ്ട് ബസുകളാണ് ഭീകരർ ഉന്നംവെ ച്ചത് ന്യൂസ് ഡസ്ക് ആകാശവാണി

നിയമനം ഉൾപ്പെടെയുള്ള ആറ് വിഷയങ്ങളിൽ രണ്ടംഗ ബഞ്ചിലെ എ കെ സിക്രിയും അശോക് ഭൂഷണും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കേസ് വിശാല ബഞ്ചിന് വിടാൻ തീരുമാനമായത് അഴിമതി വിരുദ്ധ വിഭാഗം അന്വേഷണ കമ്മീഷനുകളുടെ രൂപീകരണം വൈദ്യുതി ബോർഡിന്റെ നിയന്ത്രണം പബ്ലിക് ഭൂനികുതി പ്രോസിക്യൂട്ടർമാരുടെ നിയമനം എന്നീ വിഷയങ്ങളിൽ ബഞ്ച് യോജിപ്പ് പ്രകടിപ്പിച്ചു

ന്യൂഡൽഹിയിൽ കരൾ സംബന്ധമായ ശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആറാമത് ബിരുദദാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ആരോഗ്യകരമായ ജീവിതരീതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുൻകൈയെടുക്കണമെന്ന് മെഡിക്കൽ രംഗത്തെ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു രോഗങ്ങളെ സംബന്ധിച്ച വിഷയത്തിൽ രാജ്യവൃാപക പ്രചരണം നടത്തണമെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു

ഇന്ധനങ്ങൾക്കും ഭക്ഷ്യ വസ്തുക്കൾക്കും ഉണ്ടായ വിലയിടിവ് കാരണമാണ് നാണയപ്പെരുപ്പം കുറഞ്ഞത്

അന്താരാഷ്ട്ര വിഷയങ്ങൾക്ക് പുറമെ മതപരവും പൊതു താൽപരൃവുമുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്നും വിദേശ കാര്യമന്ത്രാലയം അറിയിച്ചു

രാജ്യത്തെ വിദൂര മേഖലകളിൽ പോലും വിമാന ഗതാഗതം സാധൃമാക്കാനാണ് കേന്ദ്രഗവണ്മെന്റ് ശ്രമിക്കുന്നതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു ഷിയാ മുസ്സീങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ലക്നൌവിൽ അവരുടെ ആവശ്യാർത്ഥമാണ് പുതിയ വിമാന സർവ്വീസ് തുടങ്ങിയത് ഷിയാമുസ്ത്രീങ്ങളുടെ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇറാഖിലെ നജഫ് നഗരം

ഇത് ഒറ്റത്തവണയായി അനുഭവിച്ചാൽ മതിയാകും

രാജ്യത്തെ പ്രഗത്ഭരായ നേതാക്കളുടെ നിരയിലാണ് സുഷമസ്വരാജിന്റെ സ്ഥാനമെന്ന് ശ്രീ മോദി ട്വിറ്ററിൽ കുറിച്ചു ബിജെപിയിലും മന്ത്രിസഭയിലും ശ്രീമതി സുഷമസ്വരാജ് വഹിക്കുന്ന സ്ഥാനം നിർണായകമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

ഇർപ്പ രാജ്യങ്ളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ്ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ അവസരങ്ങൾ വിശകലനം ചെയ്യുന്നതിനും സന്ദർശനം പ്രയോജനകരമാകും

ഏഴ് ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് ഡൽഹി കോടതി അനുവദിച്ചത് കർശന ഉപാധികളോടെയാണ് ജാമ്യം എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിലുള്ള സക്സേന ആരോഗൃപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമൃത്തിന് അപേക്ഷിച്ചത്

ജൂമ്മുകാശ്മീരിൽ കനത്ത മഞ്ഞുവീഴ്ചയ്ക്കോ മഴയ്ക്കോ സാധൃത്യുണ്ടെന്നും കാലാവസ്ഥാ നീരിക്ഷണ കേന്ദ്രം അറിയിച്ചു

പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി ദൂരദർശൻ വാർത്താ സേവന വിഭാഗങ്ങൾക്കായി സംഘടിപ്പിച്ചു സംയുക്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസ്യത വളരെ അനിവാര്യമാണെന്നും ആകാശവാണിയും ദൂരദർശൻ വാർത്തയും ഇത് അനുവർത്തിക്കുന്നുണ്ടെന്നും ഐ ബി സെക്രട്ടറി അമിത് ഖാരെ അഭിപ്രായപ്പെട്ടു

ബി എസ്

പരീക്ഷ ക്രമീകരണങ്ങളാണ് പേപ്പർ കൈപ്പറ്റാൻ പരീക്ഷ കേന്ദ്രത്തിന്റെ സൂപ്രണ്ടിനല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളും കൈക്കൊണ്ടതായി സി ബി എസ്

ആരംഭിക്കുകയാണ്

ബി എസ് ഇ പ്രത്യേ കണക്കാക്കിയിട്ടുണ്ട്

മൂല്യനിർണയത്തിൽ വിദ്യാർഥികളുടെ ശരിയായ ഉത്തരങ്ങളാണെങ്കിൽ ക്രിയാത്മകമായ ഉള്ളടക്കം കൂടി മാർക്ക് നൽകാൻ പരിഗണിക്കണമെന്ന നിർദേശവും സി ബി എസ്

പരീക്ഷ ഫലം കഴിഞ്ഞ തവണത്തേക്കാൾ ഒരാഴ്ചയെങ്കിലും നേരത്തെ പ്രഖ്യാപിക്കുമെന്നും സി ബി എസ്

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഡോളർ ചെലവിൽ രണ്ട് വർഷക്കാലം കൊണ്ടാകും നിർമ്മാണമെന്ന് യു

ബഹിരാകാശ ഏജൻസി അറിയിച്ചു

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര തൃശ്ശൂർ ജില്ലയിൽ പരുടനം തുടരുന്നു ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കില്ലെന്ന് ശ്രീ

നടത്തുന്ന കേരള സംരക്ഷണ ജാഥ വെറും പ്രഹസനം മാത്രമാണെന്നും കെ

സി പ്രസിഡന്റ് ആരോപിച്ചു

ജെ

തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട് എന്നീ പാർലമെന്റ് മണ്ഡലങ്ങൾ ചേർന്നുള്ള തിരുവനന്തപുരും ക്ലസ്റ്ററിലെ ശക്തി കേന്ദ്ര നേതാക്കളുടെ യോഗംപ്പിത്ത്ക്തിട്ട കുമ്പഴയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദ്യീയ്നാഥ് ഉൽഘാടനം ചെയ്തു

ഐ എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ സി

അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്സി ഉദ്ഘാടനം ചെയ്തു

എം ജനറൽ സെക്രട്ടറി സിതാറാം യെച്ചൂരി മഞ്ചേശ്വരത്ത് ഉദ്ഘാടനം ചെയ്യും

ദുബായ് എത്തിസലാത്ത് അക്കാദമിയിലാണ് സമ്മേളനം

നിയമസഭാ സ്പീക്കർ പി

മേഖലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ സമർപ്പിച്ച ശുപാർശ്കളിൽ ചർച്ച നടക്കും പശ്ചിമേഷ്യയിലെ കേരളീയ സമ്മൂഷ്ടമാണ് മേഖലാ സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കുന്നത് ല്വോക ്കേരള സഭയുടെ ആദ്യ മേഖലാ സമ്മേളനമാണിത്